അടിസ്ഥാന സീഴ്ക്ക്ര്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്യും

വാരിയേഴ്സിന് തുടർച്ചയായ രണ്ടാം ജയം

ആക്ട്ടുശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളൂർ പ്ലിപാടി പ്രക്ഷേപണം ചെയ്യുന്നതാണ് പ്രധാനമന്ത്രിയുട്ട് ഓഫീസിന്റെ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമായിരിക്കും

തൂടർന്ന് പ്രാദേശിക ഭാഷകളിലെ പ്രക്ഷേപണവും നടക്കും

കാർ നിക്കോബാറിലെ സുനാമി സ്മാരകം സന്ദർശിക്കുന്ന അദ്ദേഹം അവിടെ പുഷ്പചക്രം സമർപ്പിക്കും

ടി

മോദി പുറത്തിറക്കും

ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങൾക്കായുള്ള സ്റ്റാർട്ട് അപ് സംരംഭത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ഇതുകൂടാതെ ഏഴ് മെഗാവാട്ട് ശേഷിയുള്ള സൌരോർജ്ജ പ്ലാന്റിന്റെയും സോളാർ ഗ്രാമത്തിന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

സംസ്ഥാനത്തിന്റെ വിക്ട്സ്നത്തിന് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ടിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

പനിസാഗർ മുനിസിപ്പൽ വാർഡിൽ സിപിഐഎം സ്ഥാനാർഥിയാണ് വിജയിച്ചത്

ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന ജൈവ വൈവിദ്ധ്യ ബോർഡുകളുടെ പതിമൂന്നാം ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് പരിസ്ഥിതി മന്ത്രി ഡോ

റിപ്പോർട്ട് സമർപ്പിച്ച ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്നും ഏഷ്യയിൽ നിന്നും ആദ്യം റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്ത്യയാണെന്ന് ശ്രീ ഹർഷവർദ്ധൻ പറഞ്ഞു

ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി ഗവൺമെന്റ് ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്തുകൊണ്ടുള്ള സമ്പൂർണ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് മുംബൈയിൽ ഇന്നലെ ഡോ എംഐജെ ഗേൾസ് ഹൈസ്കൂളിന്റേയും ജൂനിയർ കോളേജിന്റെയും പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നഖ്വി പറഞ്ഞു

ഗുവാഹത്തിയിൽ മുതിർന്ന റയിൽവേ ഉദ്യോഗസ്ഥരുമായ്പ്പ് നീടുന്ന ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്ത് ബോഗി ബീലിന്റെ ഉദ്ഘാടനത്തിനുശേഷം പ്രദേശ്ശിത്ത് റയിൽപാത ഇരട്ടിപ്പിക്കാനുള്ള ശ്രമങ്ങളൂർണ്ട് നട്ന്നുവരുന്നതെന്നും ശ്രീ

പദ്ധതിക്ക് തടസ്സമായിരിക്കുന്ന സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് അദ്ദേഹം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി തുളസീദാസ്

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രയാണവും പദയാത്രകളും ശിവഗിരിയിൽ എത്തിച്ചേർന്നു ഇന്ന് രാവിലെ ഗവർണർ റിട്ടയേർഡ് ജസ്റ്റിസ് പി

മന്ത്രി എ കെ ബാലൻ കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സി വേണുഗോപാൽ എം പി ബിജെപി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള എന്നിവർ പങ്കെടുക്കും തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രീ ്സിർവീന്ദ്രനാഥും സാഹിത്യ സമ്മേളനം ശശിതരൂർ എംപിയും ഉദ്ഘാടനം ചെയ്യും

തുടർന്ന് സംഘടനാ സമ്മേളനം മന്ത്രി ടി

സമാപന സമ്മേളനം മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടം ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി

മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിയിക്കും പിന്നീട് പതിനെട്ടാം പടിയിറങ്ങി ആഴി തെളിച്ചശേഷമേ അയ്യപ്പന്മാരെ പടികയറാൻ അനുവദിക്കൂ

കേന്ദ്ര ഗ്ലൂൺ്മെന്റിന്റെ സുപ്രധാന മേഖലകളെക്കുറിച്ചും ഫ്ളാശ്ഷിപ്പ് പദ്ധതികളെക്കുറിച്ചും പരമ്പരയാണ് പ്രക്ഷേപണ്ട് ചെയ്യുക കേന്ദ്ര കൃഷിമന്ത്രി രാൾട്ട്മോഹൻസിംഗുമായുള്ള അഭിമുഖം ആകാശവാണിയിൽ ഇന്ന് കേൾക്കാം

കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്

സുതാര്യവും സമാധാനവുമായ വോട്ടെടുപ്പിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാർ ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും പന്ത്രണ്ടായിരത്തിലധികം പാർട്ടി പ്രവർത്തകരും നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ജയിൻ മാധ്യമങ്ങളോട് പറഞ്ഞു

മൂന്ന് പേർ പുൽവാമ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവരും നാലാമത്തെ ആൾ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരനുമാണ് ഇയാൾ ജെയിഷ് ഇ മുഹമ്മദ് തീവ്രവാദി സംഘത്തിൽപെട്ട വ്യക്തിയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏറ്റുമുട്ടൽ വേദിയിൽ നിന്ന് കുറ്റകരമായ ധാരാളം രേഖകളും കണ്ടെടുത്തു

രണ്ടാം സിംഗിൾസിൽ വാരിയേഴ്സിന്റെ ഷിയാൻ ഹൂവേ ഡൽഹിയുടെ എച്ച